ഇന്നലെ വൈകീട്ട് നാല് മണിക്ക് രജിസ്ട്രേഷൻ തുടങ്ങി ആദ്യ മൂന്ന് മണിക്കൂറിലെ കണക്കാണ് പുറത്തുവിട്ടത് കൊവിൻ പ്ലാറ്റ്ഫോം തടസ്സം കൂടാതെ പ്രവർത്തിച്ചുവെന്നും സെർവർ തകർന്നുവെന്ന മാധ്യമ റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രാലയം അറിയിച്ചു രുഭ കോവിഡിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ റഷ്യ സാധ്യമായ എല്ലാ സഹായവും ഉറപ്പുവരുത്തുമെന്ന് പ്രസിഡണ്ട് വ്പാഡിമർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയിച്ചു

റഷ്യ വികസിപ്പിച്ച സ്ഫുട്നിക് വി വാക്സിൻ അടിയന്തര ഉപയോഗത്തിന് തെരഞ്ഞെടുത്ത ഇന്ത്യയെ വ്ലാഡിമർ പുടിൻ അഭിനന്ദിച്ചു ഇന്ത്യയ്ക്കും റഷ്യക്കും മൂന്നാം ലോക രാജ്യങ്ങൾക്കുമായി ഇന്ത്യയിൽ സ്ഫുട്നിക് വാക്സിൻ നിർമ്മിക്കാൻ ഇരു നേതാക്കളും ധാരണയിലെത്തി വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്താനും മോദിയും പുടിനും തീരുമാനിച്ചു രുര കോവിഡ് പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്ന് മെഡിക്കൽ ഉപകരണങ്ങളടക്കം അടിയന്തര സഹായവുമായി രണ്ട് വിമാനങ്ങൾ ന്യൂഡൽഹിയിലെത്തി ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ ശ്വാസകോശ വെന്റിലേഷൻ ഉപകരണങ്ങൾ ബെഡ് സൈഡ് മോണിറ്ററുകൾ കൊറോണവീർ ഉൾപ്പെടെ മറ്റ് അവശ്യ മരുന്നുകൾ എന്നിവയാണ് റഷ്യൻ അംബാസിഡർ ഇന്ത്യയിലേക്ക് അയച്ചത് ഇരു രാജ്യങ്ങളും തമ്മിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെയും കോവിഡിന് എതിരായ സഹകരണത്തിന്റെയും ഭാഗമായാണ് ഇന്ത്യയ്ക്ക് സഹായങ്ങൾ ലഭ്യമാക്കാൻ തീരുമാനിച്ചതെന്ന് ഇന്ത്യയിലെ റഷ്യൻ അംബാസഡർ നിക്കോളായ് കുഡാഷെവ് പറഞ്ഞു പ്രയാസകരമായ സന്ദർഭങ്ങളിൽ പരസ്പരം പിന്തുണയും പരിശ്രമങ്ങൾ ഏകീകരിച്ചും കോവിഡിനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് അംബാസിഡർ പറഞ്ഞു ഇരു രാജ്യങ്ങളുടെയും ഊഷ്മളവും സൌഹൃദപരവുമായ ബന്ധം കാരണം ഇന്ത്യൻ ജനതയോട് റഷ്യ ആത്മാർത്ഥമായ സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നതായും റഷ്യൻ അംബാസിഡർ അറിയിച്ചു രുമ രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു

രംഭ സംസ്ഥാനത്ത് ഇന്നലെ ഏറ്റവും ഉയർന്ന കോവിഡ് സ്ഥിരീകരണം

മറ്റുജില്ലകളിൽ ഇതിൽ താഴെയാണ് പുതിയ രോഗികളുടെ എണ്ണം

കോവിഡ് കാലത്ത് പരമാവധി ആശുപത്രി സന്ദർശനം ഒഴിവാക്കി വീട്ടിൽ തന്നെ ചികിത്സ തേടാൻ കഴിയുന്ന സംവിധാനമാണ് ഇ സഞ്ജീവനി

സേവനങ്ങൾ ഇ സഞ്ജീവനിയിൽ ലഭ്യമാണ് രും സംസ്ഥാനത്ത് കൊവിഡ് കേസുകൾ ക്രമാതീതമായി വർധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ ഡൽഹിക്ക് സമാനമായ സാഹചര്യമുണ്ടാകുമെന്ന് വിദഗ്ദ്ധ സമിതി മുന്നറിയിപ്പ് നൽകി കേരളത്തിലെ ജനിതക മാറ്റം വന്ന വൈറസിനെ കുറിച്ച് പഠിച്ച വിദഗ്ധരാണ് മുന്നറിയിപ്പ് നൽകിയത്

വ്യാപാര സ്ഥാപനങ്ങൾ മാർക്കറ്റുകൾ മാളുകൾ ബസ്റ്റാന്റ് റെയിൽവെ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ പോലീസ് മിന്നൽ പരിശോധന നടത്തുമെന്ന് ഡിജിപി ലോക്നാഥ് ബഹ്റ അറിയിച്ചു ഇതിനായി എല്ലാ ജില്ലകളിലും അഡീഷണൽ എസ് പി മാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡിനെ ചുമതലപ്പെടുത്തും കോവിഡ് പ്രതിരോധത്തിന് നിയോഗിച്ച പൊലീസ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനവും സ്ക്വാഡ് വിലയിരുത്തുമെന്ന് ജില്ലാ പൊലീസ് മേധാവികളുമായി നടത്തിയ ഓൺലൈൻ യോഗത്തിൽ ലോക്നാഥ് ബെഹ്റ അറിയിച്ചു വാഹന പരിശോധനയും കർശനമാക്കും

ക്വാറന്റൈനിൽ കഴിയുന്നവരെ നിരീക്ഷിക്കാനും ബോധവൽക്കരണത്തിനുമായി രൂപീകരിച്ച വനിതാ ബുള്ളറ്റ് പട്രോൾ സംഘങ്ങളും ഇന്നുമുതൽ നിരത്തിലുണ്ടാകും

രും കോഴിക്കോട്ടെ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രാദേശിക തല നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ജില്ലാ കലക്ടർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദേശം നൽകി തദ്ദേശ സ്ഥാപന പ്രസിഡണ്ടുമാരുടെയും സെക്രട്ടറിമാരുടെയും ഓൺലൈൻ യോഗത്തിലാണ് നിർദേശം രുഭ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലയിൽ കർശന പരിശോധന ഉറപ്പാക്കിയതായി ജില്ലാ പോലീസ് മേധാവി ആർ

സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമനടപടി സ്വീകരിക്കുമെന്നും അഥിതി തൊഴിലാളികളുടെ ആശങ്കയകറ്റുമെന്നും ജില്ലാ പൊലീസ് മേധാവി അറിയിച്ചു

കണ്ടെയ്ൻമെന്റ് സോണുകളിൽ പുറത്തിറങ്ങാൻ കഴിയാത്തവർക്ക് മരുന്നുകൾ ഉൾപ്പെടെ അവശ്യവസ്തുക്കൾ എത്തിച്ചു നൽകുന്നതിന് ഫയർ ഫോഴ്സിന്റെ സേവനം ലഭിക്കുമെന്ന് ജില്ലാ ഫയർ ഓഫീസർ കെ ഹരികുമാർ അറിയിച്ചു

ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ വിദഗ്ദ്ധ സംഘം ഇന്നലെ സ്ഥല പരിശോധന നടത്തി രുഭ പുതുച്ചേരിയിൽ ലോക് ഡൌൺ തിങ്കളാഴ്ച വരെ നീട്ടി

രും അന്തരിച്ച മലപ്പുറം ഡിസിസി പ്രസിഡന്റും നിലമ്പൂരിലെ യുഡിഎഫ് സ്ഥാനാർഥിയുമായിരുന്ന വി വി പ്രകാശിന്റെ മൃതദേഹം ഉച്ചകഴിഞ്ഞ് മൂന്നിന് എടക്കര പാലുണ്ടയിൽ സംസ്കരിക്കും

ഹൈസ്കൂൾ പഠനകാലത്ത് കെ എസ്

വി പ്രകാശ് നാലു വർഷം മുമ്പാണ് മലപ്പുറം ഡി

രംഭ വി വി പ്രകാശിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ അനുശോചനമറിയിച്ചു

മലപ്പുറത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് തീരാ നഷ്ടമാണ് പ്രകാശിന്റെ വിയോഗത്തിലൂടെ ഉണ്ടായതെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അനുസ്മരിച്ചു രുര തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മന്ത്രി കെ ആർ ഗൌരിയമ്മയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു കടുത്ത പനിയെ തുടുർന്ന് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഗൌരിയമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്

രും ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ

ഏഴരക്ക് അഹമ്മദാബാദിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും